വ്യാപനം രൂക്ഷമെന്ന് കേന്ദ്ര ആരോഗൃ മന്ത്രാലയം കേരളത്തിൽ രോഗവ്യാപനം തടയുന്നതിന് കൂടുതൽ നിയന്ത്രണങ്ങൾ

ഐ

സൺറൈസേഴ്സ് ഹൈദരാബാദിന് ജയം രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിംഗ്സ് ബാറ്റ് ചെയ്യുന്നു

സംഭവം ഹൃദയഭേദകമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മരിച്ചവരുടെ കുടുംബത്തോടൊപ്പമാണെന്നും മറ്റുള്ള രോഗികൾ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും ശ്രീ

സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടതായും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ പറഞ്ഞു

ശനി ഞായർ ദിവസങ്ങളിൽ അവശ്യ സർവീസുകൾ മാത്രമാവും അനുവദിക്കുക സർക്കാർ ഓഫീസുകളിൽ പകുതി പേർ ജോലിക്കെത്തിയാൽ മതി വിദ്യാഭ്യാസം ഓൺലൈനിലൂടെ മാത്രമാക്കാനും തീരുമാനമായി

നിലവിലെ സാഹചര്യം തുടർന്നാൽ ഈ മാസം മുപ്പതോടെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം അൻപതിനായിരത്തിലേക്ക് ഉയരുമെന്നേക്കാമെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ

പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം ഊർജിതമാക്കാനുളള കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയത്തെ തുടർന്നാണ് പ്രഖ്യാപനം

കേന്ദ്രത്തിന്റെ പുതിയ നയം വാക്സിൻ ഉത്പാദനം വർധിപ്പിക്കാൻ സഹായിക്കുമെന്നും പ്രതിരോധ കുത്തിവയ്പ്പ് ഊർജിതമാക്കാൻ കഴിയുമെന്നും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തു വിട്ട വാർത്താക്കുറിപ്പിൽ പറഞ്ഞു

കോവിഡ് രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ് സംസ്ഥാത്ത് ആശുപത്രികളിൽ ഓക്സിജൻ ലഭ്യതയിലുണ്ടായ കുറവിനെത്തുടർന്ന് ഭിലായിൽ നിന്നും അടിയന്തരമായി ഓക്സിജൻ ലഭ്യമാക്കാൻ സർക്കാർ തീരുമാനിച്ചു

ഓക്സിജൻ ടാങ്കറുകൾ എത്തുന്നതിന്റെ ഭാഗമായി ദ്രുതഗതിയിലുളള സജ്ജീകരണ പ്രവർത്തനങ്ങളാണ് റെയിൽവേയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്

രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിംഗ്സ് ബാറ്റ് ചെയ്യുന്നു